കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അപലപിച്ചു

എസ് എല്ലിൽ ചെന്നൈയിൻ എഫ്

ഹൈദരാബാദിന് ജയം

ഈ ജില്ലകളിലെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രകൃതിവാതകം എത്തിക്കാനും പൈപ്പ്ലൈനിന് കഴിയും പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധന വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ

സംശുദ്ധ ഇന്ധന ഉപഭോഗം വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനാവുമെന്നാണ് വിലയിരുത്തൽ

നൂറിലേറെ സ്ഥാനങ്ങളിൽ ജലാശയങ്ങൾ താണ്ടി പൈപ്പ്ലൈൻ സ്ഥാപിക്കുന്നത് നിർമ്മാണ രംഗത്തെ വൻ വെല്ലുവിളിയായിരുന്നു ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യാ ലിമിറ്റഡാണ് വാതക വിതരണ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെയും കർണാടകത്തിലെയും ഗവർണർമാരും മുഖ്യമന്ത്രിമാരും കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇടനാഴി നിർമ്മാണത്തിലുള്ള വെല്ലുവിളികൾ നേരിടാൻ സാധ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ശ്രീ പിയുഷ് ഗോയൽ പറഞ്ഞു

അനധികൃത നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ അന്വേഷണം നടത്താൻ ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ മലിനീകരണ നിയന്ത്രണ സമിതികൾക്ക് ഡൽഹിയും പ്രാന്ത പ്രദേശങ്ങൾക്കുമായുള്ള വായു ഗുണനിലവാര കമ്മീഷൻ നിർദ്ദേശം നൽകിയതായി മന്ത്രീലയം അറിയിച്ചു

തീരുമാനം അടുത്ത ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പ്രത്യാശ പ്രകടിപ്പിച്ചു ഈ മാസം എട്ടിന് അടുത്ത വട്ട ചർച്ച നടത്താനാണ് തീരുമാനം

ഒരു കോടിയോളം കോവിഡ് ബാധിതരാണ് ഇതുവരെ രോഗമുക്തരായത്

രോഗികളുമായി അടുത്ത് ഇടപഴകിയവരെ രോഗ നിരീക്ഷണത്തിലാക്കി

ഇതോടെ ഇതുവരെ യു

കോഴികളും താറാവുകളും ഉൾപ്പെടെയുള്ള പക്ഷികൾ അസ്വാഭാവികമായി ചാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിവരമറിയിക്കണമെന്ന് ആരോഗൃവകുപ്പ് മുന്നറിയിപ്പ് നൽകി

ഇതോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗൌരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു

തുടർച്ചയായ എട്ടാം തവണയാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ സ്ഥിരമല്ലാത്ത അംഗമാകുന്നത് ഇന്തൃയുടെ പതാക സ്ഥാപിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനായത് തനിക്കു ലഭിച്ച അംഗീകാരമാണെന്ന് ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി

ഒരു റിപ്പോർട്ട്

ഓക്സ്ഫഡ് ആസ്ട്രാസെനക്ക വികസിപ്പിച്ച കോവിഡ് വാക്സിൻ വിതരണം ബ്രിട്ടനിൽ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും പുതിയ വൈറസിന്റെ വ്യാപനം തടയാൻ രാജ്യം അടച്ചുപൂട്ടുന്നത് അനിവാര്യമാണെന്നും ബോറിസ് ജോൺസൺ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം സംഭവിച്ച വൈറസിനെക്കാൾ ദക്ഷിണാഫ്രിക്കയിലെ വൈറസിന്റെ ജനിതകമാറ്റം കൂടുതലാണ് സാധാരണ കൊറോണ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡികളെ പോലും പ്രതികൂലമായി ബാധിക്കാൻ ജനിതകമാറ്റം സംഭവിച്ച ഒരു വൈറസിന് സാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി

കൊലയാളികളെ തീവ്രവാദ നിയമ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പാകിസ്ഥാനോട് ശ്രീ

കുറ്റവാളികളെ പാകിസ്ഥാൻ തീവ്രവാദ നിയമത്തിൻ കീഴിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രത്യാശിക്കുന്നതായി ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലിന്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് പ്രസ്താവനയിൽ വൃക്തമാക്കി

ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്

എല്ലിൽ ചെന്നൈയിൻ എഫ്

ഗോവയിലെ ബാംബോലിം സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സര വിജയത്തിലൂടെ ഹൈദരാബാദ് പട്ടികയിൽ ആറാം സ്ഥാനത്തെത്തി

മാനേജ്മെന്റ് സ്കൂളിന് വാജ്പേയിയുടെ പേര് നൽകിയതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു

തുടർ വിദ്യാഭ്യാസവും പ്രിശീലനവും നൽകി കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക ലക്ഷ്യമീട്ടാണ് വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതി ആവിഷ്ക്കരിച്ചിട്ടുള്ളത്